ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ഒരു സ്വർണം കൂടി

മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ മൂന്ന് ശതമാനം എന്ന നിരക്കിൽ നിന്ന് വായ്പാ പരിധി നാലര ശതമാനമാക്കി ഉയർത്താനായിരിക്കും കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്നത്

തകർന്നടിഞ്ഞ സംസ്ഥാനത്തിന്റെ സ്ഥാനത്ത് പുതിയ കേരളം സൃഷ്ടിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്

അടിസ്ഥാന മേഖലയിലും കൃഷി ജലസേചനം സാമൂഹ്യക്ഷേമം തുടങ്ങിയ മേഖലകളിലും പ്രത്യേക ദീർഘകാല പദ്ധതികൾ സംസ്ഥാനം ആവിഷ്ക്കരിക്കും

പ്രളയ മേഖലയിൽ ഗവൺമെന്റ് പ്രഖ്യാ പിച്ച വായ്പാ മൊറൊട്ടോറിയം സ്വകാര്യ പണമിടപാട് സ്ഥാപന ങ്ങളും അനുവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശൃപ്പെട്ടു ദുരി താശ്വാസ കൃാമ്പുകളിൽപോലും ചെന്ന് വായ്പാതുക തിരിച്ച് ചോദിക്കുന്ന പ്രവണതയിൽ നിന്ന് അവർ പിൻതിരിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇ ഭരണാധികാരികളുടെ സഹായവാഗ്ദാനം അവർ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലും പെടു ത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ പ്രളയക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും തുടർ നടപടികളും ചർച്ച ചെയ്യാൻ ഇന്ന് തിരു വനന്തപുരത്ത് സർവ്വകക്ഷിയോഗം ചേരും

രക്ഷാ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും ഇനി ദുരിതാ ശ്വാസ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കമെന്നും മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു

പ്രളയത്തിൽ നിന്ന് കരകയറുന്ന കേരളത്തിൽ ഇനി ആവശ്യം ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്തംബർമാർ ഉൾപ്പെടെ വിദഗ്ദ്ധ തൊഴിലാളികളെയു മാണെന്ന് കേന്ദ്രസഹമന്ത്രി അൽഫോൻസ് കണ്ണന്താനം ന്യൂഡൽഹിയിൽ പറഞ്ഞു സംസ്ഥാ നത്തെ മുൻ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഇലക്ട്രീ ഷ്യൻമാരും പ്തംബർമാരും മരപ്പണിക്കാരും മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അഭ്യർത്ഥിച്ചു പാകം ചെയ്യാതെ കഴിക്കാവുന്ന ഭക്ഷണസാധനങ്ങളും പാക്ക റ്റിലാക്കിയ ഭക്ഷ്യാൽപ്പന്നങ്ങളും കൂടുതലായി കേരളത്തിൽ എത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെള്ളപ്പൊക്കത്തിൽ വാഹനരേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവ ലഭ്യമാകുന്നതിന് നടപടിക്രമങ്ങൾ ലളിതമാക്കിയതായി മന്ത്രി എ

വാഹനരേഖകൾ നഷ്ടപ്പെട്ടവർക്ക് സെപ്റ്റംബർ ഒന്നുവരെ പ്രത്യേക ഫീസ് നൽകാതെ തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പ്രളയബാധയുടെ പശ്ചാത്തലത്തിൽ കരിഞ്ചന്തയും പൂഴ്ത്തി വെപ്പും നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് മന്ത്രി പി

പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ കലക്ടറേറ്റിൽ വിവരം അറിയിക്കണമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു അനധികൃതമായി ദുരിതാശ്ചാസ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കു ന്നവരെ അറസ്റ്റുചെയ്യുമെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ തിരു വനന്തപുരത്ത് പറഞ്ഞു കരിഞ്ചന്തയിൽ സാധനങ്ങൾ വിൽക്കു ന്നവരെയും അമിത വില ഈടാക്കുന്നവരെയും അറസ്റ്റ് ചെയ്ത് കേസ്സെടുക്കുമെന്നും ബെഹ്റ മാധ്യമങ്ങളോട് പറഞ്ഞു മഴക്കെടുതിയും പ്രളയവും നാശം വിതച്ച സംസ്ഥാനത്തെ രക്ഷാദൌതൃം അവസാനഘട്ടത്തിലേക്ക്

ഒറ്റപ്പെട്ടു പോയ അവസാനത്തെ ആളെ രക്ഷിക്കും വരെ ദൌത്യം തുടരു മെന്ന് സേനാ കമാന്റന്റ് ലെഫ്റ്റനന്റ് ജനറൽ ഡി

സോണി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

പത്തനംതിട്ട ജില്ലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്ന സാഹചര്യത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഫലപ്ര ദമായി നടത്തുന്നതിനാണ് ഇനി മുൻഗണന നൽകുന്നതെന്ന് ജില്ലാ കലക്ടർ പി

നൂഹ് പറഞ്ഞു ജില്ലയിലെ സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്താൻ സാധിക്കാത്തവർക്ക് ഭക്ഷണസാധനങ്ങളും മറ്റും എത്തിച്ചു നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

തിരു വൻവണ്ടൂരിലെ ദുരിതാശ്ചാസ ക്യാമ്പിലായിരുന്ന സുനിലിന്റെയും അനുപമയുടെയും മകൾ അനവദ്യയാണ് മരിച്ചത്

വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്ത നത്തിന്റെ ഭാഗമായി വീടുകളിൽ ശുചീകരണത്തിനിടെയായിരുന്നു അപകടം വെള്ളപ്പൊക്കത്തിൽ ആരും എവിടെയും കുടുങ്ങിക്കിടക്കുന്നി ല്ലെന്ന് ഉറപ്പാക്കിയതിനെ തുടർന്ന് ചെങ്ങന്നൂരിലെ പാണ്ടനാട് തിരു വൻവണ്ടൂർ മേഖലകളിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായി

കാലവർഷവും ഉരുൾപൊട്ടലും തകർത്ത കണ്ണൂർ ജില്ലയിലെ മലയോരമേഖല സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു

ഇരിട്ടി താലൂക്കിൽപ്പെട്ട അയ്യൻകുന്ന് പഞ്ചായത്തിലാണ് നാശ നഷ്ടം കൂടുതൽ

സംസ്ഥാനത്തെ ഡാമുകളുടെ ഷട്ടറുകൾ അടയ്ക്കുന്ന കാര്യ ത്തിൽ ധൃതി പിടിച്ച് തീരുമാനമെടുക്കില്ലെന്ന് കെ

ബി ചെയർമാൻ എൻ എസ് പിള്ള തിരുവനന്തപുരത്ത് പറഞ്ഞു തുലാ വർഷം വരാനിരിക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് തീരുമാനം പ്രളയമേഖലകളിൽ വെള്ളക്കെട്ട് തുടരാൻ കാരണം ഡാമുകളല്ലെന്നും ഇപ്പോൾ തുറന്നുവിടുന്ന വെള്ളം അപകടം സൃഷ്ടിക്കുന്ന അളവിലല്ലെന്നും ചെയർമാൻ പറഞ്ഞു പ്രളയത്തെ തുടർന്ന് സംസ്ഥാനത്ത് നിലച്ച ഗതാഗത സംവി ധാനങ്ങൾ ഏറെക്കുറെ പുനസ്ഥാപിച്ചു കാസർകോട് മുതൽ തിരു വനന്തപുരം വരെ ട്രെയിൻ ഗതാഗതം ഇന്നലെ പുനരാരംഭിച്ചു

പലയിടത്തും വേഗം കുറച്ചാണ് ട്രെയിനു കൾ കടത്തിവിടുന്നത് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകാൻ രണ്ട് ദിവസം വേണ്ടിവരുമെന്ന് റെയിൽവേ അറിയിച്ചു നിലവിൽ പത്തിലധികം സ്ഥലങ്ങളിൽ വേഗനിയന്ത്രണമുണ്ട് ദീർഘദൂര വണ്ടികളുടെ റദ്ദാക്കലും തിരിച്ചു വിടലും നാളെ വരെ തുടരും തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ദേശീയ പാതയിലൂടെ റോഡ് ഗതാഗതവും പുനരാരംഭിച്ചു സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം ഏറെക്കുറെ പുന സ്ഥാപിച്ചെങ്കിലും ഇന്നത്തെ അഞ്ച് ട്രെയിനുകൾ റദ്ദാക്കിയതായി റെയിൽവെ അറിയിച്ചു കണ്ണൂർ എറണാകുളം കണ്ണൂർ എക്സ്പ്രസുകളും നാഗർകോവിൽ മംഗലാപുരം എക്സ്പ്ര സും കണ്ണൂർ തിരുവനന്തപുരം എക്സ്പ്രസും ഷൊർണൂർ എറണാകുളം പാസഞ്ചറുമാണ് റദ്ദാക്കിയത് പ്രളയക്കെടുതിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ മുഖ്യമ ന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് സംഭാവനയായി കണ്ണൂർ കലക്ട്രേറ്റിൽ ഇന്നലെ ഒരു കോടി രൂപ ലഭിച്ചു ചെക്കുകൾ ഉൾപ്പെടെ ഇതുവരെ രണ്ടു കോടി മുപ്പതു ലക്ഷം രൂപ ലഭിച്ചിട്ടു ണ്ട് എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ ദുരിതബാധിതർക്ക് സാധനങ്ങളുമായി രണ്ട് കണ്ടെയ്നർ ലോറികൾ കലക്ട്രേറ്റിൽ നിന്നും ഇന്നലെ യാത്രയായി ഗവൺമെന്റിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ പിന്തുണ നൽകുമെന്ന് മുസ്ത്രീം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി

കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു

മീൻപിടിത്ത തൊഴിലാളികൾ അറബികടലിന്റെ മധ്യ പടിഞ്ഞാറൻ ഭാഗത്തും തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തും പോകരു തെന്ന് നിർദ്ദേശമുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നതായി സമൂഹ മാധ്യമ ങ്ങൾ വഴി വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച ഒരാളെ പൊലീസ് അറസ്റ്റ് ചെയ്തു

വെള്ളപ്പൊക്കത്തെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം അടച്ചതോടെ കൊച്ചി നാവികസേനാതാവളത്തിൽ നിന്നും തിരു വനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും കൂടു തൽ സർവീസുകൾ ക്രമീകരിച്ചു കൊച്ചിയിൽ നിന്നും രാവിലെ ഇൻഡിഗോ സർവീസുകൾ ആരംഭിച്ചു ജക്കാർത്തയിൽ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഒരു സ്വർണ്ണം കൂടി ലഭിച്ചു

ഇതോടെ ഇന്തൃയുടെ മെഡൽ നേട്ടം ഏഴായി മെഡൽ പട്ടി കയിൽ ഇന്ത്യ ഏഴാമതാണ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ തകർപ്പൻ സെഞ്ചറിയുടെ ബലത്തിൽ ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് കൂറ്റൻ ലീഡ്

നഗരങ്ങളിൽ രാത്രി ഒമ്പത് മണിയ്ക്ക് ശേഷവും ഗ്രാമങ്ങളിൽ ആറ് മണിയ്ക്ക് ശേഷവും എ ടി എമ്മുകളിൽ പണം നിറയ്ക്കേണ്ടെന്ന് ഏജൻസികൾക്ക് കേന്ദ്ര ആഭൃന്തര മന്ത്രാലയം നിർദേശം നൽകി പ്രശ്ന ബാധിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന എ ടി എമ്മുകളിൽ നാല് മണിയ്ക്ക് മുമ്പായി പണം നിറയ്ക്കണം അടുത്തവർഷം ഫെബ്രു വരി എട്ടിന് മുമ്പ് നിർദേശം പ്രാവർത്തികമാക്കണമെന്നാണ് മന്ത്രാലയത്തിന്റെ ഉത്തരവ്

ടി എമ്മുകളിൽ പണം നിറയ്ക്കുമ്പോൾ വാനുകൾ ആക്രമിക്ക പ്പെട്ട സംഭവങ്ങളെ തുടർന്നാണിത് കണ്ണൂർ പേരാ വൂ രി ന ടുത്ത് തിരു വോ ണ പ്പു റത്ത് കെ എസ്

മാനന്തവാടിയിൽ നിന്ന് വെള്ളരിക്കുണ്ടിലേക്കും ശ്രീകണ്ഠ പുരത്തുനിന്ന് സുൽത്താൻ ബത്തേരിയിലേക്കും പോകുന്ന ബസ്സു കളാണ് രാവിലെ എട്ടരയോടെ അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ വരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്നുപൂലർച്ചെ കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്ത് പള്ളി പ്പാട്ട് അയ്യപ്പക്ഷേത്രത്തിന് സമീപം നിർമ്മാണത്തിലിരുന്ന ഇരുനില വീട് തകർന്നു വീടിനുചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു കൊച്ചി പുതുവൈപ്പിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു

ജി ടെർമിനലിന് സമീപം രാവിലെയായിരുന്നു സംഭവം വള്ളത്തിലുണ്ടായിരുന്ന നാലു പേരെ മറ്റു വള്ളക്കാർ രക്ഷപ്പെടുത്തി ഇന്ന് കണ്ണൂർ കലക്ട്രേറ്റിൽ വിചാരണയ്ക്കായി വെച്ച ഇരിട്ടി തലശ്ശേരി താലൂക്കുകളിലെ ദേവസ്വം പട്ടയ കേസുകൾ മാറ്റിവെ ച്ചതായി അധികൃതർ അറിയിച്ചു